സംസ്ഥാനത്ത് വ്യാപകമായ നാശന്ത്യഹടം വീട്ടമ്മ ഉൾപ്പെടെ രണ്ടു പേർ മരിച്ചു

ജില്ലകളിൽ കനത്ത മഴയും ഉരുൾപ്പൊട്ടലും

എഫിന്റെ പത്തു ടീം കൂടി സംസ്ഥാനത്തേക്ക് ആശങ്കപ്പെടേണ്ട സാഹചരൃമില്ലെന്ന് മുഖൃമന്ത്രി

അടിയന്തരനടപടികൾക്ക് നിർദേശം നാശനഷ്ടം ഒരിടവേളക്ക് ശേഷം ആഞ്ഞടിച്ച കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടം

ഇടുക്കിവയനാട് കാസർകോട് മലപ്പുറം തുടങ്ങി ഏതാണ്ട് എട്ടു ജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ് ജില്ലകളിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്

മേപ്പാടി പുത്തുമലയിൽ മണ്ണിടിച്ചിലിൽ രണ്ട് വീടുകൾ തകർന്നു

ഈ സാഹചര്യത്തിൽ മഴ തുടരുന്നത് ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് കാസർകോഡ് മഴ കാസർകോട് ജില്ലയിൽ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് ശക്തമായ കാറ്റും വീശിയ്ടിക്കുന്നുണ്ട് വെള്ളരിക്കുണ്ട് താലൂക്കിൽ അഞ്ച് വീടുകൾ ഭാഗികമായി തകർന്നു

വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ

കൂടുതൽ വിവരങ്ങളുമായി ആകാൾവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്

മണികണ്ഠൻ ചാൽ സി എസ് ഐ

മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു ഇടുക്കി മഴ ഇടുക്കിയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു ടൂറിസം കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലാണ് മൂന്നാറിനെയും മറയൂരിനെയും ബന്ധിപ്പിക്കുന്ന പെരിയവാരൈയിലെ താൽക്കാലിക പാലം മലവെള്ളപ്പാച്ചിലിൽ തകർന്നു

മുക്കൂട്ടുതറ അരയാഞ്ഞിലി മണ്ണിലെ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി

പൊൻമുടി അറിയിപ്പ് തിരുവനന്തപുരം പൊന്മുടിയിൽ രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും മരങ്ങൾ ഒടിഞ്ഞ് വീഴുകയും ചെയ്തു പൊന്മുടി ഇക്കോ ടൂറിസം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുന്നതായി വനംവകുപ്പ് അറിയിച്ചു

ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പത്തു ടീമിനെ കൂടി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിലമ്പൂരിലേക്കും ഇടുക്കിയിലേക്കും ഓരോ ടീമിനെ അയച്ചു കഴിഞ്ഞു ആവശ്യപ്പെട്ട പത്തിൽ ഏഴു ടീമിനെ കൂടി ്രഇന്ന് വൈകിട്ട് ലഭിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ജില്ലാ ഭരണ സംവിധാനത്തിന്റെ അറിയിപ്പ് ലഭിക്കുന്ന മുറ്റയ്ക്ക് മാറി താമസിക്കാൻ ജനങ്ങൾ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ആശുപത്രികളിൽ മതിയായ സൌകര്യമൊരുക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്കും മന്ത്രി കെ

ശൈലജ നിർദേശം നൽകി ട്രെയിൻ ഗതാഗതം സംസ്ഥാനത്തുണ്ടായ കനത്ത മഴയിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം താറുമാറായി മിക്ക ട്രെയിനുകളും വൈകി ഓടുന്നു

ആലപ്പുഴയ്ക്കും എറണാകുളത്തിനുമിടയിൽ രണ്ടിടത്ത് മരം ട്രാക്കിലേക്ക് വീണു

സർവീസ് യാത്രാക്ലേശം നേരിടുന്ന സ്ഥലങ്ങളിൽ സി എം ഡിയുടെ നിർദേശപ്രകാരം കൂടുതലായി ബസുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കെ എസ് ആർ ടി

നാഷണൽ ഹൈവേയിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും എംസി റോഡിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയും ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന പരാതിയെ തുടർന്നാണ് കെ

യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ സർവ്വീസ് ഓപ്പറേഷന് നേതൃത്വം നൽകാൻ എല്ലാ ഡിപ്പോകളിലും പ്പെത്യേകം ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്

കാർഡ് ഉടമകൾക്കും ബന്ധപ്പെട്ട ആശുപത്രികളിൽ സൌജന്യ ചികിത്സ ലഭിക്കുമെന്ന് മന്ത്രി കെകെ ശൈലജ അറിയിച്ചു കാരുണ്യ പദ്ധതിയെക്കുറിച്ചും കാരുണ്യ ബനവലന്റ് ഫണ്ട് മുഖേനയുള്ള പദ്ധതികളെക്കുറിച്ചും നിലനിന്നിരുന്ന സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് ധനവകുപ്പിന്റെ നിർദേശപ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്

സ്റ്റേഷൻ വളപ്പിലെ ആളൊഴിഞ്ഞ കാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്

ബി ജെ പി സംസ്ഥാന പ്രസ്ടിഡ്ന്റ് അഡ്വ പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട് ഡെപ്യൂട്ടി മേയ്ർ മ്മീരാദർശക ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് തുടങ്ങിയവർ സാ്സാരിച്ചു

തൃശൂർ കൊടകരയിൽ നിന്നാണ് നിഷാദിനെ പൊലീസ് കണ്ടെത്തിയത് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്

ഇന്നലെ പുലർച്ചെ മുതലാണ് നിഷാദിനെ കാണാതായത്

വകുപ്പിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ വിദഗ്ധ സമിതി നടത്തിയ പഠന റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ചരിത്ര ഗവേഷണ കൌൺസിൽ ചെയർമാൻ ഡോ